കേന്ദ്ര മാതൃകയിൽ സംസ്ഥാനത്ത് വൃവസായ സുരക്ഷാ സേന രൂപീകരിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയതായി മുഖ്യ മന്ത്രി പിണറായി വിജയൻ

നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ വിടുതൽ ഹർജി കൊച്ചിയിലെ വിചാരണകോടതി തള്ളി ഐ ലീഗ് ഫുട്ബോളിൽ ഗോഗുലം കേരള എഫ്സി കോഴി ക്കോട്ട് ഐസ്വാൾ എഫ്സിയെ നേരിടും കാർഷിക മേഖലയിൽ തൊഴിൽ നൈപുണ്യവികസനം അനി വാര്യമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ പറഞ്ഞു കാർഷിക മേഖലയുടെ സുസ്ഥിര വികസനത്തിന് സംസ്കര ണവും മൂല്യവർധനയും അടിസ്ഥാനമാക്കി കർഷകർക്ക് പരിശീ ലനം തുടങ്ങണമെന്ന് അദ്ദേഹം നിർദേശിച്ചു

രാജ്യത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക രംഗ മാണ് കേരളത്തിന്റേതെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു

പുതു തലമുറ കൂടുതൽ അഗ്രി സ്റ്റാർട്ട് അപ്പുകളിലേക്കും കാർഷിക സംരംഭങ്ങളിലേക്കും ഇറങ്ങി ച്ചെല്ലണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മന്ത്രി വി എസ് സുനിൽകു മാർ അധ്യക്ഷനായിരുന്നു മന്ത്രിമാരായ സി രവീന്ദ്രനാഥ് എ സി മൊയ്തീൻ ചീഫ് വിപ്പ് പി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെ ടുത്തു കേന്ദ്ര മാതൃകയിൽ സംസ്ഥാനത്ത് വ്യവസായ സുരക്ഷാസേന രൂപീകരിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മലപ്പുറം പാണ്ടിക്കാട്ട് ഇന്ത്യൻ റിസർവ് ബറ്റാ ലിയന്റെ പാസ്സിംഗ്ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യ മന്ത്രി

കൌണ്ടർ ടെററിസം ഇൻസർജൻസി സ്കൂളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മുതിർന്ന് പൊലീസ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുട ങ്ങിയവർ കൊളപ്പറമ്പിലെ പൊലീസ് പരേഡ് ഗ്രൌണ്ടിൽ കമാന്റോ സേനാംഗൃങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡും സായുധ പ്രകടന ങ്ങളും കാണാനെത്തിയിരുന്നു നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം പദ്ധതിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂ രിൽ നിർവഹിക്കും കേരളം വിഷരഹിത പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കു ന്നത്

പുതിയ മദ്യനയത്തെ പറ്റി ചർച്ച നടന്നിട്ടില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു

ഡ്രൈഡെ പിൻവലിച്ചേക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകളോട് പ്രതിക രിക്കുകയായിരുന്നു മന്ത്രി ഡ്രൈഡെ ഒഴിവാക്കുന്നതിനെ പറ്റി ഇപ്പോ ളൊന്നും പറയാനാവില്ലെന്നും ടിപി രാമകൃഷ്ണൻ പ്യക്തമാക്കി എറണാകുളം മരടിൽ തീരപരിപാലന നിയമം ലംഘിച്ച ഫ്ളാറ്റു കൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി ഫ്ളാറ്റൂകളിൽ സ്ഫോടക വസ്തു ക്കൾ നിറയ്ക്കാൻ തുടങ്ങി ഹോളി ഫെയ്ത്ത് എച്ച്ടുഒ ഫ്ളാറ്റി ലാണ് രാവിലെ മുതൽ സ്ഫോടക് വസ്തുക്കൾ നിറയ്ക്കുന്നത് മുംബൈ എഡിഫൈസ് എഞ്ചിനീയറിംഗ് കമ്പനിയും ആഫ്രി ക്കയിലെ ജസ്റ്റ് ഡിമോളിഷ് കമ്പനിയും ചേർന്നാണ് ഫ്ളാറ്റ് പൊളി ക്കുന്നത്

ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യ ങ്ങൾ വൈകിട്ട് ജില്ലാകലക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം തീരുമാനിക്കും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ വിടുതൽ ഹർജികൊച്ചി യിലെ വിചാരണകോടതി തള്ളി തെളിവുകളും സാക്ഷിമൊഴികളും നിലനിൽക്കില്ലെന്നും കുറ്റപത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണ മെന്നും ആവശ്യപ്പെട്ടാണ് ദിലീപ് ഹർജി നൽകിയിരുന്നത് ദിലീപ് വിചാരണ നേരിടണമെന്നും കോടതി പറഞ്ഞു കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് അടച്ചിട്ട കോടതിയിലായിരുന്നു ഹർജിയുടെ പരിഗണന പത്താംപ്രതി വിഷ്ണുവിന്റെ വിടുതൽ ഹർജിയും കോടതി തള്ളി മുതിർന്ന എ ഐ എഡിഎംകെ നേതാവും തമിഴ്നാട് നിയമ സഭാ മുൻ സ്പീക്കറുമായ പി എച്ച് പാണ്ഡ്യൻ അന്തരിച്ചു

ജയ ലളിതയുടെ മരണശേഷം വി കെ ശശിക്കലയെ മുഖ്യമന്ത്രിയാക്കു ന്നതിന് എതിർത്ത നേതാക്കളിൽ പ്രമുഖനായിരുന്നു പി എച്ച് പാണ്ഡ്യൻ ഇറാനിയൻ കമാൻ കാസം സുലൈമാനിയെ വധിക്കാൻ തീരു മാനിച്ചത് യുദ്ധം ഒഴിവാക്കാന്നാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്പ് വ്യക്തമാക്കി യുദ്ധം തുടങ്ങാൻ വേണ്ടിയല്ല ഇത്തരമൊരു തീരുമാന്റ്മടുത്തതെന്നും അദ്ദേഹം വാഷിംഗ്ടണിൽ വാർത്താ സമ്മേളന്ത്തിൽ പറഞ്ഞു സൈനിക നടപടി എടുക്കേണ്ട ലക്ഷ്യക്യേന്ദ്രങ്ങൾ അമേരിക്ക കണ്ടെത്തിയിട്ടുണ്ടെന്നും അമേരിക്കൻ പൌരന്മാരെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ ആവശ്യമായ ഏതു നട പടിയും സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഐ ലീഗ് ഫുട്ബാളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് ഐസാൾ എഫ് സിയെ നേരിടും

അഞ്ച് മത്സരങ്ങൾ കളിച്ച ഐസ്വാൾ എഫ് സി ആറ് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഗോകുലത്തിന്റെ മുന്നിലാണ് ഐസ്വാൾ എഫ് സിക്ക് മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ആശംസകൾ നേർന്നു ഐലീഗിലെ മറ്റ് മത്സരങ്ങളിൽ ഇന്ന് ഉച്ചക്ക് രണ്ടിന് ട്രാവു എഫ് സി പഞ്ചാബിനേയും വൈകീട്ട് അഞ്ചിന് ഈസ്റ്റ്ബംഗാൾ ചർച്ചിൽ ബ്രദേഴ്സിനേയും നേരിടും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി എടി കെ കൊൽക്കത്തയെ നേരിടും മുംബൈയിൽ രാത്രി ഏഴരക്കാണ് മത്സരം ഇന്ന് ജയിക്കാനായാൽ ബംഗളുരുവ്വിനെ പിൻതള്ളി എടികെ പോയിന്റ് നിലയിൽ രണ്ടാമതാകും ദ് സ ബംഗളുരുവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബംഗളുരു എഫ് സി തോൽപ്പിച്ചു

പൌരത്യ നിയമ ഭേദഗതിക്കെതിരെ അസമിലെ പ്രക്ഷോ ഭങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരു ക്കിയിട്ടുണ്ട്

സംസ്ഥാന ട്രാക്ക് സൈക്ലിംങ് മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടത്ത് തുടക്കമായി വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറി ലധികം സൈക്ലിംങ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പട്ടികവർഗ വികസന വകുപ്പിന്റെ മോഡൽ റസിഡൻഷ്യൽ സ് കൂളുകളിലും പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും പഠിക്കുന്ന കുട്ടികളുടെ സംസ്ഥാന തല കലാമേളയായ സർഗോത്സവ ത്തിന് കോഴിക്കോട് തുടക്കമായി പരമ്പരാഗത നൃത്തം ഗോത്രഗാനം സംഘനൃത്തം നാടോടി നൃത്തം എന്നിവയിൽ മത്സരങ്ങൾ നടക്കും

സർഗോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാട്ടനം മന്ത്രി ടി പി രാമകൃഷ്ൻ നിർവഹിക്കും സമാപന സമ്മേളനും തിങ്കളാഴ്ച മന്ത്രി എകെ ബാലൻ ഉദ്ഘാടനം ചെയ്യും മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഗവ നിയോഗിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ ഞെട്ടിക്കുന്ന കണ്ടെ ത്തലുകൾ അടങ്ങുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് ദിവസ ങ്ങളായിട്ടും സിനിമാ മേഖ്ലയിൽ നിന്ന് പ്രതികരണമുണ്ടാകാത്തത് അമ്പരപ്പിക്കുന്നു പ്രെന്ന് ബിജെപി സംസ്ഥാന ജനറൽസെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനെതിരെ തെറ്റിദ്ധാരണ പരത്താൻ തെരുവിൽ റാലി നട ത്തുകയും സമൂഹ് മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുകയും ചെയ്ത പൃഥിരാജ് കമൽ പാർവ്വതി തുടങ്ങിയവരുടെയൊന്നും സാമൂഹിക പ്രതിബദ്ധത സ്വന്തം സഹപ്രവർത്തകരുടെ ആത്മാഭി മാനത്തിന്റെ കാര്യത്തിൽ കാണുന്നില്ലെന്ന് അവർ ഫെയ്സ്ബുക്കിൽ കുറ്റപ്പെടുത്തി ഇത്ര ഗുരുതരമായ വിഷയം കൺമുന്നിലുണ്ടായിട്ടും അത് അവ സാനിപ്പിക്കാൻ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികളെ കുറിച്ച് ഗവ നോട് ചോദിക്കാനും സ്ത്രീകളുടെ മാനത്തിന് വിലകല്പിക്കാത്ത കാസ്റ്റിംഗ് കൌച്ചുമാരെ എന്നെന്നേക്കുമായി ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കാനോ ഇവർ തയ്യാറായിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സ്വർണവില പുതിയ റിക്കോർഡിലേക്ക്

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണവില ഉയരുന്ന പ്രവണത തുടരുകയാണ് എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ അയ്യപ്പസംഘം ചൊവ്വാഴ്ച പുറപ്പെടും

രഥ ഘോഷയാത്ര അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്

പ്രഥമ മൂന്നാർ വിൻർ കാർണിവ്ലിന്റെ പ്രചരണാർത്ഥം വിമൻ ഓൺ ബുള്ളറ്റ് പരിപാടിക്ക് തുടക്കമായി

സോണിയാ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിൽ ബുള്ളറ്റ് റൈഡേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്